ഇനിയും ഉയരാൻ സാധൃത ജാഗ്രതാ നിർദ്ദേശം

മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള മികച്ച പിന്തുണയാണ് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിൽ അംഗങ്ങളായ രാജ്യങ്ങൾ നൽകുന്നതെന്നും ശ്രീമതി സുഷമ ട്വിറ്ററിൽ കുറിച്ചു സുരക്ഷാ കൌൺസിലിൽ അംഗങ്ങളല്ലാത്ത ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരാണ് മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ നാല് തവണയാണ് ഐകൃരാഷ്ട്രസഭ നിർദ്ദേശിച്ചതെന്നും കേന്ദ്രമന്ത്രി വൃക്തമാക്കി

ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഫ്രാൻസ് എന്നും ഇന്തൃയോടൊപ്പമുണ്ടാകുമെന്നും ഇതിന്റെ ഭാഗമായാണ് നടപടിയെന്നും ഫ്രാൻസ് വിദേശകാരൃ മന്ത്രാലയം അറിയിച്ചു ഫ്രാൻസ് ധനകാര്യ വിദേശകാര്യ ആഭ്യന്തര വകുപ്പുകൾ സംയുക്തമായാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയത്

പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ കടന്നൂകയറിയ ആയുധധാരി യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവയ്ക്കുകയായിരുന്നു ഇരുപള്ളികളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തതായും ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും ന്യൂസിലാൻഡ് പൊലീസ് അറിയിച്ചു സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ വെടിവയ്പിനെ ശക്തമായി അപലപിച്ചു ന്യൂസിലന്റിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമാണ് ഇന്നത്തേതെന്ന് അവർ പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന്റെ ന്യൂസിലാന്റ് പര്യടനം റദ്ദാക്കി

ഇവരെല്ലാം സുരക്ഷിതരാണെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു

ഗ്രാമീണ മേഖലയിലു് താഴേക്കിടയിലുമുള്ള നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റായാണ് ഈ പുരസ്കാരം നൽകിവരുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രകാശ് സിംഗ് രഘുവംശിക്ക് ലഭിച്ചു

മൃഗസംരക്ഷണ വിഭാഗത്തിലെ പുരസ്കാരം തമിഴ്നാട്ടിൽ നിന്നുള്ള പെരിയസാമി രാമസാമിക്ക് ലഭിച്ചു ഗാന്ധി നഗറിൽ നൂതന ആശയ സംരംഭകത്വ മേളയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു നൂതന ആശയങ്ങൾ കണ്ടെത്തുക പ്രദർശിപ്പിക്കുക അവയ്ക്ക് പ്രോത്സാഹനം നൽകുക ആശയങ്ങൾക്ക് അനൂകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പും ദേശീയ നൂതന ആശയ ഫൌണ്ടേഷനുമാണ് മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്

ഇന്നലെ നടപ്പാലം തകർന്നുണ്ടായ അപകടത്തിൽ ആറ് പേരാണ് മരിച്ചത് നടപ്പാലം പൊളിക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമെ പുനസ്ഥാപിക്കുകയുള്ളു ഇന്നലെത്തെ അപകടത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം സമർപ്പിക്കുമെന്നും മുംബൈ കോർപ്പറേഷൻ കമ്മീഷണർ അറിയിച്ചു

ജെ പി നേതാവ് രാജ്ടീവ് ബാബർ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ഡൽഹി മുഖ്യമ്പ്ത്രി അരവിന്ദ് കെജ്രിവാളിനും മറ്റുളളവർക്കും ഡൽഹി ്കോടതി സമൻസ് അയച്ചു

കെജ്രിവാൾ രാജ്യസഭാ അംഗം സുശീൽകുമാർ ഗുപ്ത എം

എ മനോജ് കുമാർ ആം ആദ്മി പാർട്ടി വക്താവ് അതിഷി മാർലന എന്നിവർക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടാണ് രാജീവ് ബാബർ കോടതിയെ സമീപിച്ചത്

വി പാറ്റ് സ്തിപ്പുകളും എണ്ണമെന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ ഹർജിയിൻമേൽ സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഇക്കാരൃം ആവശ്യപ്പെട്ടത്

വോട്ടിംഗ് യന്ത്രത്തിൽ തങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കു തന്നെയാണ് ലഭിച്ചതെന്ന് വോട്ടർമാരെ അറിയിക്കുന്ന സംവിധാനമാണ് വി

പാറ്റ് മെഷീനുകൾ

ജമ്മുകശ്മീരിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് തൽസ്ഥിതി വിലയിരുത്തുന്നത്

നൂർ മുഹമ്മദ് എ

ഇന്നലെ ശ്രീ നഗറിലെത്തിയ സംഘം കോൺഗ്രസ് പി ഡി പി മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ശ്രീനഗറിൽ കൂടിക്കാഴ്ചകൾ നടത്തി ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റ് തൽപ്പരകക്ഷികൾ എന്നിവരുമായി കശ്മീർ മേഖലയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ശ്രീനഗറിൽ കൂടിക്കാഴ്ച നടത്തി

കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയ്ക്ക് പട്ടിക കൈമാറിയ ശേഷമായിരിക്കും പ്രഖ്യാപനം

പിമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാന്റ് ആണെന്നും രമേശ് ചെന്നിത്തല വൃക്തമാക്കി ഡൽഹിയിൽ കോൺഗ്രസ് സ്കീനിങ് കമ്മിറ്റി യോഗത്തിന് മുമ്പായി വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പി സംസ്ഥാന അദ്ധ്യക്ഷൻ പി

ശ്രീധരൻപിള്ളയും മുൻ അദ്ധ്യക്ഷൻ കുമ്മനം രാജശേഖരനുമടക്കമുളള നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായുളള ചർച്ചയ്ക്ക് നാളെ ഡൽഹിയിലെത്തും

ജെ

അപ്നദൾ രണ്ട് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ബി ജെ

ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു മിർസാപൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എം

ഗോണ്ട ബരാഭങ്കി കൈരാന സംബൽ ഗാസിയാബാദ് എന്നീ സീറ്റുകളില്പ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുൻമന്ത്രി പ്പീന്റോദ് സിംഗ് രാം സാഗർ റാവത് താബാസും ഹസൻ മുൻ എം

എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ പാർട്ടി ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ ഇന്ന് രാവിലെയാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്ത് വിട്ടത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സഖ്യം സെക്കുലാർ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് അറിയപ്പെടും ചെന്നൈയിൽ മൂന്ന് സീറ്റുകളിലും ഡി എം

അതിനാൽ സൂര്യാഘാതം ഒഴിവാക്കുന്നതിനായി ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോ ശേഖർ കുര്യാക്കോസ് അറിയിച്ചു

ബി സി സി ഐ യുടെ വിലക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് താരം കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു